ഭാഗമായി ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു അൽപസമയത്തിനകം തിരുവല്ലയിൽ എത്തും ഇന്ന് ബുദ്ധപൂർണിമ

കശുവണ്ടി വികസ്സ് കോർപ്പറേഷൻ ഫാക്ടറികൾ ന് മറ്റെന്നാൾ പ്രവർത്തനം പുനരാരംഭിക്കും

നാളെമുതൽ ഇല്ലാതാകും

ഇ ഇ മെയിൻ പരീക്ഷാ ഫലം സി ബി എസ്

ഇന്ന് പ്രസിദ്ധീകരിക്കും

പോരാട്ടം

വെങ്കയ്യ നായിഡു അല്പസമയത്തിനകം തിരുവല്ലയിൽ എത്തിചേരും കൊച്ചയിൽ നിന്നും തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം എത്തുക

തുടർന്ന ഡോ

ജോസഫ് മാർത്തോമ്മാ മെത്രാപ്പോലിത്തയുടെ പൌരോഹിത്യ ശുശ്രൂഷയുടെ വജ്രജൂബിലി ആഘോഷവും ഉദ്ഘാടനം ചെയ്യും തിരുവല്ലയിലെ പരിപാടിക്കു ശേഷം വൈകീട്ട അഞ്ചൂമണ്ണിയോടെ ഉപരാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങും

വെങ്കയ്യ നായിഡു കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തു മഹാരാജാസ് മുതൽ ഇടപ്പള്ളി സ്റ്റേഷൻ വരെയും തിരിച്ചും ആയിരുന്നു യാത്ര മന്ത്രി മാത്യു ടി തോമസും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ അനുഗമിച്ചു

ദിനാചരണം പ്രമാണിച്ച് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു ഈവർഷത്തെ ബുദ്ധജയന്തി ആഘോഷങ്ങൾ ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നുച്ച തിരിഞ്ഞ് ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര മന്ത്രിമാരായ ഡോ

പാലക്കാട് കാക്കയൂർ ബുദ്ധവിഹാരത്തിൽ ഇന്ന് വൈകിട്ട് തപാൽ കവർ പ്രകാശനം ചെയ്യും ഇതിന് മുന്നോടിയായി തേങ്കുറിശ്ശിയിലെ ബുദ്ധ തപോബോധി വിഹാരത്തിൽ ധർമ്മ പ്രഭാഷണം ഉണ്ടാകും

ജയമോഹൻ അറിയിച്ചു തോട്ടണ്ടി ക്ഷാമര്മൂല്ം മൂന്നുമാസമായി ഫാക്ടറി അടഞ്ഞു കിടക്കുകയായിരുന്നു ക്രക്രളത്തിൽ നിന്നും സംഭരിച്ച തോട്ടണ്ടി ഉപയോഗിച്ചാണ് ഇപ്പോൾ വീണ്ടും പ്രവർത്തനം തുടങ്ങുന്നതെന്നും ഓണം വരെ മുടങ്ങാതെ തൊഴിൽ നൽകാനാകുമെന്നും ചെയർമാൻ പറഞ്ഞു ഇതിനായി ഘാന ഐവറികോസ്റ്റ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്നതിനായി ടെൻണ്ടറുകൾ വിളിച്ചിട്ടുണ്ടെന്നും ചെയർമാൻ വ്യക്തമാക്കി

ഇത് പൂർത്തിയാകുന്നതോടെ വീതിയേറിയ ജല വാഹനങ്ങൾക്ക് തണ്ണീർമുക്കം ബണ്ട് കടന്നുപോകാൻ കഴിയും വിവിധ ആഴങ്ങളിലും വീതിയിലുമുള്ള പുഴയിലൂടെയും കനാലിലൂടെയും കടന്നുപോകുന്നതിനായി ജലവാഹനങ്ങളെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന സംവിധാനമാണ് ലോക്ക് ഗേറ്റ്

നോക്കുകൂലി ഒഴിവാക്കാൻ കേരള ചുമട്ടുതൊഴിലാളി നിയമത്തിൽ ഗവൺമെന്റ് വരുത്തിയ്ക്ക് ഭേദഗതി ഗവർണർ അംഗീകരിച്ചു നോക്കുകൂലി വാങ്ങിയിൽ ജാമ്യമില്ലാക്കുറ്റം ചുമത്തി കേസെടുക്കുമെന്ന് നിയമസഭയിൽ മന്ത്രി ടി

അമിത കൂലി ഇൌടാക്കിയാൽ തൊഴിൽവകുപ്പിനെ അടിയിക്കാം കൂടുതലായി വാങ്ങിയ കൂലി തിരികെ വാങ്ങിക്കൊടുക്കും

രാജ്യത്തെ വിവിധ സാങ്കേതിക സർവ്വകലാശാലകളിൽ പ്രവേശനം ഉറപ്പാക്കാനുള്ള ആദ്യ പരീക്ഷയാണിത്

ഇ ഇ അഡ്വാൻസ്ഡ് പരീക്ഷ എഴുതാനുള്ള യോഗ്യത ലഭിക്കും

ഇ പേപ്പർ ഒന്നിന്റെ ഫലം പ്രസിദ്ധീകരിക്കുമെന്ന് സി ബി എസ്

നാട്ട്ളെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് അനേഷ്ണം ഉദ്യോഗസ്ഥനായ തലശ്ശേരി സി

മകൾ ഐശ്വര്യ കിഷോറിനെ വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിലും സൌമ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും

യാത്രാസൌകര്യം ലഭ്യമാക്കാൻ പുതിയ ഓൺലൈൻ ടാക്സി സർവ്വീസുകൾ ആരംഭിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചിരുന്നു സംസ്ഥാനത്ത് ഇത് സംബന്ധിച്ചു ചർച്ചകൾ പ്രാരംഭ ഘട്ടത്തിലാണെന്ന് ഗതാഗത കമ്മീഷണർ കെ പത്മകുമാർ ആകാശവാണിയോട്

തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗ്ഗനിർദ്ദേശങ്ങളുടെ അ്ടിസ്ഥാനത്തിൽ കർണാടക ചീഫ് സെക്രട്ടറി ആഭ്യന്തര ്രസ്ക്രട്ടറി ഡി ജി

എന്നിവരുമായി നടത്തിയ ചർച്ചകളെ തുടർന്നാണ് നിർദ്ദേശം നൽകിയത്

ഐ പി സുരക്ഷ ഉൾപ്പെടെയുള്ളൂ കാര്യങ്ങളിൽ കർണാടക പോലീസുമായി ഏകോപിച്ച് പ്രവർത്തിക്ക്ണമെന്നും സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകി

വിളംബര റാലിയോടെയാണ് പരിപാടികൾ ആരംഭിക്കുന്നത് ചെങ്ങന്നൂർ ആർഡിഒ ഓഫീസിനു മുന്നിൽ കളക്ടർ ടി

ഇന്ന് പുലർച്ചെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം

ഫിഫ അപ്പീൽ കമ്മിറ്റി അംഗമാകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പി

ലക്ഷ്മണന്റെ വ്വേർപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു കണ്ണൂരീന്റെ സാമൂഹ്യ കായിക രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന അദ്ദേഹം കായികമേഖലയുടെ വളർച്ചയ്ക്ക് നിതാന്ത പരിശ്രമം നടത്തിയ വൃക്തി കൂടിയായിരുന്നു ജീവിതം തന്നെ ഫുട്ബോളിന് സമർപ്പിച്ച ലക്ഷ്മണന്റെ വേർപാട് കായിക മേഖലയ്ക്ക് വലിയ നഷ്ടമാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു

മറ്റെന്നാൾ ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിന്റെ അജണ്ടയിലാണ് നെയ്യാർ ജലവിഷയവും ഉൾപ്പെടുത്തിയിരിക്കുന്നത് നെയ്യാർ അന്തർസംസ്ഥാന നദിയല്ല കേരളത്തിന്റെ മാത്രം നദിയാണ് അതിനാൽ ഇതൊരു അന്തർസംസ്ഥാന തർക്ക വേദിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമേ അല്ല എന്നിട്ടും അതൊരു തർക്കവിഷയമായി ചർച്ച ചെയ്യാൻ സംസ്ഥാനം അനുവദിച്ചത് അത്ഭുതകരമാണെന്നും ശ്രീ

പൊതുമൂർാമ്ത്ത് വികസനകാര്യ അധ്യക്ഷന്മാർക്കെതിരെയുള്ള അഫിശ്വാസ് പ്രമേയ ചർച്ചയാണ് ഈ ദിവസങ്ങളിൽ നടക്കുക

പി ഭരിക്കുന്ന നഗരസഭക്കെതിരെ യൂ ഡി എഫ് നേരെത്തെ അവതരിപ്പിച്ച രണ്ടു അവിശ്വാസ പ്രമേയങ്ങളിൽ ഒന്ന് വിജയിക്കുകയും മറ്റൊന്ന് പരാജയപ്പെടുകയും ചെയ്തിരുന്നു

ൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിംഗ്സ് ഡൽഹി ഡെയർ ഡെവിൾസുമായി ഏറ്റുമുട്ടും

മറ്റൊരു മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആറ് വിക്കറ്റിന്റെ വിജയം കരസ്ഥമാക്കി

ഉച്ചതിരിഞ്ഞു മൂന്നിന് പഞ്ചായത്തു ഹാളിൽ നടക്കുന്ന യോഗത്തിൽ കൃഷി മന്ത്രി വി

ക്ഷേത്ര്തിലെ ധജ പ്രതിഷ്ഠയോട് അനുബന്ധിച്ചു നടന്ന പൊങ്കാലിയിൽ ്പതിനായിരങ്ങൾ പങ്കെടുത്തു